മെന്ന വാഗ്ദാനം മുൻഗവൺമെന്റുകൾക്ക് പാലിക്കാനാ യില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി കേരളത്തിലെ സർവ്വകക്ഷിസംഘം പ്രധാനമന്ത്രിയുമായി

തന്റെ ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധ തികളിലും പരിപാടികളിലും പ്രതിപക്ഷം കുറ്റം കണ്ടെത്തു കയാണെന്നും അദ്ദേഹം ആരോപിച്ചു

ലലലലലലലലലലലലല കേരളത്തിലെ സർവ്വകക്ഷിസംഘം പ്രധാനമന്ത്രിയു മായി നടത്തിയ കൂടിക്കാഴ്ച നിരാശാജനകമായിപ്പോ യെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഇതോടെ മുൻഗണനാവിഭാഗത്തിൽ അല്ലാത്തവർക്ക് ഭക്ഷ്യധാന്യം നൽകാനാവാത്ത സാഹചര്യമുണ്ടാകു മെന്നും മുഖ്യമന്ത്രി അറിയിച്ചു പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ കാര്യ ത്തിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് ലഭിച്ചി ട്ടില്ല കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട നടപടികളും ആവശ്യകതയും നരേന്ദ്രമോദിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അങ്കമാലി ശബരി റെയിൽപ്പാതയുടെ കാര്യ ത്തിൽ റെയിൽവെയുമായി ചർച്ചയ്ക്ക് അവസരമൊരു ക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പുനല്കിയതായി പിണറായി വിജയൻ പറഞ്ഞു കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ വിവിധ സംസ്ഥാനങ്ങ ളുമായി ചർച്ച നടത്തി കഴിയാവുന്ന വേഗത്തിൽ തീരു മാനത്തിലെത്താമെന്നും പ്രധാനമന്ത്രി അറിയിച്ചതായി പിണറായി വെളിപ്പെടുത്തി കേരളത്തിലെ കാലവർഷക്കെടുതികൾ വിലയിരു ത്താൻ കേന്ദ്രസംഘത്തെ അയക്കണമെന്ന ആവശ്യവും സംഘം ശക്ത മായി ഉന്ന യിച്ചു കെടു തികൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടെന്നും ആവ ശ്യമായ നടപടി സ്വീകരിക്കാമെന്നും പ്രധാനമന്ത്രി അറി യിച്ചിട്ടുണ്ട് കോഴിക്കോട് വിമാനത്താവളത്തെ പൂർണ സജ്ജ മാക്കുന്നതിന് പ്രധാനമന്ത്രി ഇടപെടണമെന്നും സർവ കക്ഷി സംഘം ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പറഞ്ഞു ലലലലലലലലലലലല നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായ അവിശ്ചാസപ്ര മേയം നാളെ ലോക്സഭ ചർച്ചയ്ക്കെടുക്കും

ലോക്സഭയിലെ നിലവിലെ കക്ഷി നിലയനുസരിച്ച് പ്രമേയം പാസാകാനിടയില്ലെങ്കിലും ഗവൺമെന്റിനെതിരെ നിലപാട് കടുപ്പിക്കാമെന്നാണ് പ്രതി പക്ഷം കരുതുന്നത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി ആൾക്കൂട്ടകൊല ദളിത് പീഡനം പട്ടികവിഭാഗങ്ങൾക്കെതി രായ അതിക്രമങ്ങൾക്കെതിരായ നിയമം ദുർബലപ്പെടുത്തിയ നടപടി തുടങ്ങിയ വിവിധ വിഷയങ്ങളുന്നയിച്ചാണ് അവി ശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നല്കിയത് തെലുഗുദേശം പാർട്ടിയുടെ പ്രമേയം സ്പീക്കർ സ്ഥീകരിച്ചതിനെതുടർന്ന് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണയ്ക്കു കയായിരുന്നു അതിനിടെ രാജ്യസഭാംഗമായ ജോസ് കെ മാണിയു ടെയും ബി ജെ ഡി എം പി ബൈജയന്ത് ജയ്പാണ്ഡയു ടെയും രാജി സ്പീക്കർ അംഗീകരിച്ചു

പ്രമേയത്തെ പിന്തു ണയ്ക്കില്ലെന്ന് ടി ഡി പി എം

വർഷകാല സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രമേയത്തെ എൻ ഡി എ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് പാർലമെന്ററികാര്യ മന്ത്രി അനന്ത്കുമാർ ന്യൂഡൽഹി യിൽ പറഞ്ഞു അവിശ്വാസപ്രമേയത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് എം പിമാരുടെ യോഗം രാവിലെ സോണിയാഗാന്ധിയുടെ നേതൃ ത്വത്തിൽ ഡൽഹിയിൽ ചേർന്നു പ്രമേയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ബി ജെ ഡിയും ടി ആർ എസും അന്നാ ഡി എം കെയും ഇന്ന് തീരുമാനിക്കും വിവിധ പാർട്ടികളു മായി ബി ജെപിയും കോൺഗ്രസും ചർച്ച തുടരുക യാണ്

എല്ലാ ഇന്ത്യക്കാർക്കും സത്യമറിയാൻ അവ കാശമുണ്ടെന്നും എന്നാൽ സത്യം മറിച്ചുവെക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ടിറ്ററിൽ കുറ്റപ്പെടുത്തി ഭരിക്കു ന്ന വരെ ചോദ്യം ചെയ്യരുതെന്നാണ് ബി ജെപി നിലപാട് വിവരവകാശ നിയമത്തിൽ കൊണ്ടുവരുന്ന മാറ്റത്തെ ഓരോ ഇന്ത്യക്കാ രനും എതിർക്കണമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ലലലലലലലലലലലലല ജനകീയാസൂത്രണ പരിപാടി പ്രകാരം നടപ്പാക്കേണ്ട പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കു മെന്ന് മന്ത്രി ഡോ കെ

ജനകീ യാസൂത്രണ പദ്ധതിയുടെ ഉത്തരമേഖലാ അവലോക നയോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷനായി ആറ് ജില്ലകളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ എൻജിനീ യറിംഗ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവലോകന യോഗ ത്തിൽ പങ്കെടുക്കുന്നുണ്ട് കഞ്ചിക്കോട് കോച്ച്ഫാക്ടറി സംബന്ധിച്ച് കേന്ദ്രറെ യിൽവെ മന്ത്രിയും സഹമന്ത്രിയും തമ്മിലെ ആശയക്കു ഴപ്പം പരിഹരിക്കണമെന്ന് ഭരണപരിഷ്ക്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യു താ ന ന്ദൻ പറഞ്ഞു ഇതിനുശേഷം വേണം പാർലമെന്റ് മറുപടി നൽകാനെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഉപേക്ഷിക്കു ന്നില്ല എന്നാണ് റെയിൽവെമന്ത്രി പിയൂഷ് ഗോയൽ തനിക്ക് രേഖാമൂലം നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയതെന്ന് വി എസ് പറഞ്ഞു എന്നാൽ ഇനിയൊരു കോച്ചുഫാ ക്ടറിയുടെ ആവശ്യ മില്ലെന്നാണ് റെയിൽവെ സഹമന്ത്രി ലോക്സഭയിൽ അറിയിച്ചത് രാജ്യത്ത് സ്ഥാപിക്കുന്ന കോച്ച് ഫാക്ടറികൾ മന്ത്രിയുടെയും സഹമന്ത്രിയുടെയും വൃക്തിപരമായ തോന്നലുകളുടെ അടിസ്ഥാനത്തിലാവരുതെന്നും വി എസ് അഭിപ്രായ പ്പെട്ടു ലലലലലലലലലലലലല ശബ രി മ ല യിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന ഗവൺമെന്റ് നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കുമെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്ഥ ബോർഡ് ഇക്കാര്യത്തിൽ ഗവൺമെന്റിനോടൊപ്പം നിൽക്കു മെ ന്നാണ് പ്രതീക്ഷ യെന്ന് മന്ത്രി കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു

അത്യാധുനിക ആയുധങ്ങളും സംഭവസ്ഥലത്തു നിന്ന് കണ്ടെടുത്ത തായി പൊലീസ് അറിയിച്ചു

ഏഷ്യ പെസഫിക് മേഖലയിൽ അമേരിക്കയും അവരുടെ വ്യാപാരി പങ്കാളികളും തമ്മിൽ സംഘർഷം വർധിക്കുകയാണെങ്കിലും ദക്ഷിണേഷൃയിൽ ഇന്തൃയുടെ നേതൃത്വത്തിൽ സമ്പദ് വൃവസ്ഥ അതിവേഗം വളരുകയാണെന്ന് എ ഡി ബി ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു

ഋഷികേശ് ഗംഗോത്രി ഹൈവേയിൽ ഇന്ന് രാവിലെയാ യിരുന്നു അപകടം ഉത്തരാഖണ്ഡ് ട്രാൻസ്പോർട്ട് കോർപറേഷൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്

കോട്ടയം മണിമലയാറ്റിൽ തിങ്കളാഴ്ച കാണാതായ അടൂർ സ്വദേശി പ്രവീണിന്റെ മൃതദേഹമാണ് രാവിലെ കണ്ടെത്തിയത്

ശക്തമായ ഒഴുക്കിന് സാധൃതയുളളതിനാൽ ഇരുകരകളിലും താസ മിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് കൊല്ലം ജില്ലാ കലക്ടർ മുന്നറിപ്പ് നല്കി

കടൽ പൊതുവെ പ്രക്ഷുബ്ധ മായിരിക്കും മത്സൃത്തൊഴിലാളികൾ കടലിൽ പോകരു തെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ലലലലലലലലലലലല വീട്ടമ്മയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ അറസ്റ്റിലായ രണ്ട് ഓർത്തഡോക്സ് വൈദികരുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട കോടതി തളളി റിമാന്റിൽ കഴിയുന്ന ഫാദർ ജോബ് മാത്യു ഫാദർ ജോൺസൺ വി മാത്യു എന്നിവ രുടെ ജാമ്യാപേക്ഷയാണ് കോടതി നിരസിച്ചത്

കേസിലെ പ്രതികളായ ഫാ സോണി വർഗീസ് ഫാ ജെയ്സ് കെ ജോർജ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേ ക്ഷകൾ സുപ്രീംകോടതി അല്പസമയത്തിനകം പരിഗ ണി ക്കും മുൻകുർ ജാമ്യാ പേക്ഷ യിൽ തീരുമാനമാകുന്നതുവരെ ഇവരെ അറസ്റ്റു ചെയ്യരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു

മേഴ്സിക്കുട്ടിയമ്മ നിർവൃഹിക്കും മലയോര ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജന പ്പെടുത്തി കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത നമ്പികുളത്ത് ഇക്കോടൂറിസം പദ്ധതിക്ക് ഇന്ന് തുടക്ക മാകും

ഒന്നരക്കോടി രൂപ ചെലവിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് കണ്ണൂർ ധർമ്മടം തുരുത്തു മുതൽ കോഴിക്കോട് നഗരഭാഗങ്ങൾ വരെ വൃക്തമായി കാണാമെന്നതാണ് കാറ്റുളളമല നമ്പി കുളത്തിന്റെ പ്രപ്രധാന ആകർഷണമായി പറയുന്നത് കുരുമുളകിന്റെ വില ഉയർത്തുന്നതിന് അവശ്യ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ സുരേഷ്പ്രഭു ഉറപ്പുനൽകിയതായി ജോയ്സ് ജോർജ് എം

ശ്രീലങ്കയുൾപ്പെടെ രാജ്യങ്ങളിൽ നിന്ന് ഗുണ നിലവാരം കുറഞ്ഞ കുരുമുള കിന്റെ ഇറക്കുമതിയും ചില രാജ്യങ്ങളിൽ നിന്ന് കുരുമുളക് കള ളക്കടത്തും നിരോധിക്കുന്നതടക്കം കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കൈക്കൊള്ളുക ലലലലലലലലലലലലല ആയുർവേദ കോളജ് വിദ്യാർത്ഥികളുടെ സർജറി പരിശീലനത്തിനെതിരെ ഒരു വിഭാഗം അലോപ്പതി ഡോക്ടർമാർ പ്രഖ്യാപിച്ച സമരം രാജ്യത്തെ നിയമ വൃ വസ്ഥ യോട് വെല്ലു വിളി യാണെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിയിൽ ആരോപിച്ചു

അതേസമയം പല കേസുകളിലും ശസ്ത്രക്രിയയ്ക്കായി സർജൻമാർക്ക് റഫർ ചെയ്യാറുണ്ട് ഇത് സങ്കരവൈദ്യത്തിനു വേണ്ടിയാണെന്ന വാദം ശുദ്ധ അസംബന്ധവും തെറ്റിദ്ധാരണ പരത്താനുദ്ദേശിച്ചുമാ ണെന്ന് എ എം എ ഐ ഭാരവാഹികൾ പറഞ്ഞു

പാഠ പുസ്തക രചനാകമ്മിറ്റി കൺവീനർ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സ്ഥാപകൻ കെ

എം സംസ്ഥാന കൂടിയാലോചന സമിതിയംഗം വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ തുടങ്ങിയ നിലകളിൽ കരുവളളി മുഹമ്മദ് മൌലവി പ്രവർത്തിച്ചിരുന്നു

മഹിളാകിസാൻ ശാക്തീക രൺ പരിയോജനയിലൂടെ കുടുംബശ്രീ ജില്ലാമിഷൻ ട്രാൻസ്ജൻഡറുകളായ അഞ്ചുപേരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച പുനർജനി ഗ്രൂപ്പാണ് സംഘകൃഷിക്ക് നേതൃത്വം നൽകുന്നത്

ടി ഐ കലോത്സവത്തിന് കണ്ണൂർ ഗവൺമെന്റ് ഐ ടി

ഉച്ചകഴിഞ്ഞ് എ എൻ ഷംസീർ എം